ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ

ബിജെപി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കുമ്മിറ്റിയോഗം ഇന്ന് ന്യൂഡൽഹിയിൽ

ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെതിരെ ഐക്യരാഷ്ട്ര സഭ ഉപരോധം ഏർപ്പെടുത്താൻ സമ്മർദ്ദം തുടരുമെന്ന് ഇന്ത്യ

മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം സ്വതന്ത്രവും സുതാര്യവുമായി തെരഞ്ഞെട്ടൂപ്പ് നടത്താനുള്ള ഭരണഘടനാ ബാധ്യത കമ്മീഷനുണ്ടെണ്ട് ശ്രീ

സംശുദ്ധമായ തെരഞ്ഞെടുപ്പ് ന്ടപടിക്രമങ്ങൾ നടത്തുക വലിയ വെല്ലുവിളിയാണ്

പാർട്ടികളുടെയും സ്ഥാനാർഥ്രികളുടെയുമെല്ലാം പണച്ചെലവ് കൃത്യമായി നിരീക്ഷിക്കണ്ഠെന്നും കമ്മീഷണർ നിദേശിച്ചു

ജില്ലാ മജിസ്ട്രേട്ടുമാർ പൊലീസ് സൂപ്രണ്ടുമാർ കമ്മിഷണർമാർ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്ന് അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് ബസു അറിയിച്ചു മുഖ്യ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായും ജില്ലാ ഭരണാധികാരികളുമായും അദ്ദേഹം ചർച്ച നടത്തും

സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തുന്നതിനുവേണ്ടിയാണ് നൂർമുഹമ്മദ് വിനോദ് സുറ്റ്ഷി എ എസ് ഗിൽ എന്നീ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ ഇന്നലെ ശ്രീനഗറിൽ എത്തിയത് സംസ്ഥാനത്ത് ജനാധിപത്യ ഭരണം നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് എത്രയും പെട്ടെന്ന് നടത്തണമെന്നും കോൺഗ്രസ് പിഡിപി ബിഎസ്പി തുടങ്ങിയ പാർട്ടികൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു

സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനും തെരഞ്ഞെട്ടൂപ്പിലെ തന്ത്രങ്ങൾ മെനയാനും പാർട്ടികളും മുന്നണികളും തീർക്കിട്ട കൂടിയാലോചനയിലാണ് ആദ്യ ഘട്ട സ്ഥാനാർഥി പ്ട്ടിക തയ്യാറാക്കാൻ ബിജെപി നേതൃയോഗം ഇന്ന് ഡ്ൽഹിയിൽ ചേരും കോൺഗ്രസ് മൂന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറക്കി കൂടുതൽ വിവരങ്ങളുമായി തുളസീദാസ് വോയ്സ് ബിജെപി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും പാർട്ടി അധ്യക്ഷൻ അമിത് ഷാ വിളിച്ച യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ പങ്കെടുക്കും ആദ്യ ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറക്കുമെന്നാണ് സൂചന

കേരളത്തിലെ സ്ഥാനാർഥികളുടെ കാര്യത്തിലും തീരുമാനമുണ്ടായേക്കുമെന്ന് സൂചന ഉണ്ട് കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർഥികളുടെ പട്ടിക ഇന്ന് വൈകുന്നേരത്തോടെ പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ട്

അസമിൽ മഹിള കോൺഗ്രസ് അധ്യക്ഷ സുഷ്മിത ദേവും മുൻ കേന്ദ്ര മന്ത്രി പബൻസിംഗ് ഖട്ടോവറും മത്സരിക്കും ഷില്ലോങ്ങിൽ മുഗൾസാൻമയും വിൻസന്റ് പാലയുമാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയ പ്രമുഖർ തെലങ്കാനയിലെ എട്ട് സ്ഥാനാർത്ഥികളുടെ പട്ടികയും ലിസ്റ്റിൽ ഇടം നേടി ന്യൂസ് ഡെസ്ക് ആകാശവാണി

മുംബൈയിൽ വാർത്താ സമ്മേളനത്തിലാണ് പ്രകാൾ് അംബേദ്കർ സ്ഥാനാർഥികളെ പ്രഖ്യാപിച്ചത്

വഞ്ചിത് ബഹുജൻ അഗാദ്യി എന്ന ബാനറിലാണ് ഇതുവരും സഹകരിക്കുന്നത്

ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബിജെപിയുടെ സാധ്യതാ സ്ഥാനാർഥി പട്ടികയിൽ തന്നെ ഉൾപ്പെടുത്താത്തിൽ പ്രതിഷേധിച്ചാണ് രാജി എന്നും ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമാക്കി

അതേസമയം തേജ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർഥിയെ പാർട്ടി ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല

രാഷ്ട്രപതി ഭവനിൽ പ്രൌഡഗംഭീര ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അവാർഡുകൾ സമ്മാനിച്ചു

പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ രാഷ്ട്രപതിയിൽ നിന്നും പദ്മഭൂഷൻ ഏറ്റുവാങ്ങി

മലയാളിയായ പ്രമുഖ ചരിത്രകാരൻ കെ

പ്രമുഖ നടൻ മനോജ് ബാജ്പേയ് ക്രിക്കറ്റ് താരം ഗൌതം ഗംഭീർ ഫുട്ബോൾ താരം സുനിൽ ഛേത്രി ബാസ്കറ്റ് ബോൾ താരം പ്രശാന്തി സിംഗ് പർവ്വത്യാർോഹകൻ ബജേന്ദ്രി പാൽ തുടങ്ങിയവർക്ക് രാഷ്ട്രപതി പ്പദ്മശ്രീ പുരസ്കാരം സമ്മാനിച്ചു

ചലച്ചിത്രതാരം മോഹൻലാൽ കഴിഞ്ഞ ദിവസം നടന്നിച്ടുങ്ങിൽ പുരസ്കാരം ഏറ്റുവാങ്ങി ന്യൂസ് ഡെസ്ക് ആകാൾവാണി

സുരക്ഷ കൌൺസിലിലെ പതുകിയിലധികം അംഗങ്ങൾ ഇയാളെ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി മസുദിനെ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള ശ്രമം ഇന്ത്യ നിരന്തരം തുടരുകയാണ് ഇക്കാര്യത്തിൽ ആവശ്യമെങ്കിൽ ചൈനയുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യമന്ത്രാലയം വൃക്തമാക്കി

ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ലേ ഡ്രിയാനാണ് ഇന്ത്യയ്ക്ക് പിന്തുണയറിച്ചത് ജയ്ഷെ ഇ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ സ്വത്തുക്കൾ മരവിപ്പിക്കാനുള്ള ഫ്രാൻസിന്റെ തീരുമാനം അദ്ദേഹം ശ്രീമതി സ്വരാജിനെ അറിയിച്ചു പുൽവാമ ആക്രമണത്തിന്റെ സുഷമ ഉത്തരവാദിത്തം മസൂദ് അസർ ഏറ്റെടുത്ത സാഹചര്യത്തിലാണ് തീരുമാനം മസൂദിനെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയതായും ഇയാളുടെ സ്വത്ത് വകകൾ മരവിപ്പിക്കാൻ യൂറോപ്യൻ യൂണിയനിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രി വ്യക്തമാക്കി

ഇന്നലെ അമേരീക്കയിലെ മിയാമിയിൽ ചേർന്ന കൌൺസിൽ യോഗത്തിനു്ശേഷം ഫിഫ പ്രസിഡന്റ് ഗിയാനി ഇൻഫാന്റിനോയാണ് ഇക്കാര്യം അറിയിച്ചത് ഇതോടെ രണ്ടാമത്തെ ഫിഫ ലോക്കപ്പ് മത്സരങ്ങൾക്കാണ് ഇന്ത്യ വേദിയാകുന്നത്

ന്യൂഡൽഹിയിൽ മാധ്യമ അവാർഡ് ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ

ഗ്രാമീണ ഇന്ത്യയുടെ വികസനവും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ പരിഷ്ക്കരണങ്ങളുമാണ് മറ്റ് പരിഗണന മേഖലകൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ രാജ്യത്ത് ഒരു മേഖലയിലും നികുതി നിരക്കിൽ വർദ്ധനവ് വരുത്തിയിട്ടില്ലെന്ന് ശ്രീ

വിധ്വംസക ശക്തികൾ കള്ളപ്പണം ഉപയോഗിക്കുന്നത് തടയുന്നതിന്റെ ഭാഗമായാണ് പരിശോധനയെന്ന് കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് പ്രസ്താവനയിൽ അറിയിച്ചു സുതാര്യവും സത്യസന്ധവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് പരിശോധന നടത്തിയതെന്ന് ആദായ നികുതി വകുപ്പ് വൃക്തമാക്കി